പെരിഫെറൽ എക്സ് പ്രസ്സ്വേ ഡൽഹി മെട്രോയുടെ എസ്കോർട്സ് മുജേസർ ബല്ലഭ്ഗഡ്ജ് ഇടനാഴി എന്നിവ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു

ജി പിയും ദേവസ്വം ബോർഡും സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി

നാളെ ഗോവയിലാരംഭിക്കും

വിശ്വകർമ്മ കൌശൽ വിശ്വവിദ്യാലയത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും ശ്രീ മോദി നിർവ്വഹിച്ചു കൂടുതൽ വിവരങ്ങളുമായി കവിത സുനു

ഡൽഹിയിലെയും മേഖലകളുടെയും അനുബന്ധ മലിനീകരണം കുറയ്ക്കുന്നതിൽ പെരിഫറൽ എക്സ്പ്രസ്സ്വേ നിർണ്ണായക പങ്ക് വഹിക്കുമെന്ന് നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു

എം പി എക്സ്പ്രസ് ഹൈവേ എന്ന വെസ്റ്റേൺ പെരിഫറൽ എക്സ്പ്രപസ് ഹൈവേയിലൂടെ സാധിക്കുമെന്നു പ്രത്യാശിക്കുന്നതായും ശ്രീ

ഇതിനിടെ മൂന്നംഗ എൻ

ഇന്നലത്തെ ആക്രമണത്തിൽ മൂന്നുപേർ കൊല്ലപ്പെട്ടിരുന്നു

ജി

കൂടാതെ സംസ്ഥാനത്തെ നിരങ്കാരി ഭവനുകളുടെ ്സുരക്ഷ ശക്തമാക്കി

ഇതിലൂടെ വിമാനയാത്ര കൂടുതൽ സൌകര്യപ്രദവും ദുരിതമുക്തവുമായിത്തീരും

ഈ സമ്പ്രദായത്തിലൂടെ യാത്രാ വിമാനങ്ങളുടെ തൽസമയ യാത്രാ വിവരവും യാത്രാ വിവരപ്പട്ടികയുമെല്ലാം കാലാനുസൃതമായി ലഭിക്കും സുരക്ഷിതവും സൌകര്യപ്രദവും ദുരിതമില്ലാത്തതും ആനന്ദദായകവുമായ വിമാനയാത്രാ അനുഭവം യാത്രക്കാർക്ക് ലഭ്യമാക്കുന്നതിന് തന്റെ മന്ത്രാലയത്തിന് പ്രതിബദ്ധതയുണ്ടെന്ന് ഉദ്ഘാടനച്ചടങ്ങിൽ ശ്രീ സുരേഷ്പ്രഭു പറഞ്ഞു

ശബരിമല്യ്ക്കുള്ട ് വികസനത്തിനായി കേന്ദ്രം അനുവദിച്ച നൂറ് ക്യോടി ് രൂപ സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചിട്ടില്ലെന്ന് ആദ്ദേഹം പറഞ്ഞു

ജെ

എസ് എസ് പ്രവർത്തകർ കേരളാ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഇതുസംബന്ധിച്ച് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രതിഷേധ പരിപാടികൾ നടന്നു

ഇവരുടെ ജാമ്യാപേക്ഷ മറ്റെന്നാൾ പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു

ദേവസ്വം ബോർഡിനും ഡി ജി പിക്കുമാണ് കോടതി നിർദ്ദേശം നൽകിയത് സന്നിധാനത്ത് വലിയ നടപ്പന്തലിൽ ഭക്തർക്ക് പൂർണ്ണമായും നിയന്ത്രണം പാടില്ല

വെള്ളിയാഴ്ച സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടു

നിലവിലെ സാഹചരൃത്തിൽ പ്രായോഗിക ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടിയാണ് വിധി നടപ്പാക്കാൻ സാവകാശം തേടുന്നത് സ്ത്രീകൾക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യം ഇല്ലാത്തതിനാൽ വിധി നടപ്പാക്കാൻ കൂടുതൽ സമയം ആവശ്യമാണെന്നാണ് ബോർഡ് വ്യക്തമാക്കിയത് അധികൃതരുമായും നിയമവിദഗ്ധരുമായും ആലോചിച്ച ശേഷമാണ് ദേവസ്വം ബോർഡ് സാവകാശ ഹർജി സമർപ്പിച്ചത്

വിയറ്റ്നാം രാഷ്ട്രപതി ഓഫീസ് ചെയർമാൻ ദവോ വിയറ്റ് ട്രംഗ് ഇരുരാജൃങ്ങളിലേയും അംബാസിഡർമാർ എന്നിവർ ച്ഛേർസ്സ് ശ്രീ

വിയറ്റ്നാം ഇന്ത്യ ബിസിനസ്സ് ഫോറം പ്രമ്മീനിൽസംഘത്തെയും ഇന്ത്യൻ വ്യാപാര സമൂഹത്തെയും രാഷ്ട്രപതി ഇന്ന് അഭിസംബോധന ചെയ്യും ഇന്ത്യയും വിയ്റ്റ്നാ്മും തമ്മിൽ ദൃഢമായ വ്യാപാര സാമ്പത്തിക ബന്ധങ്ങളാണ് ഉള്ളത്

രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ സ്ത്രീ വോട്ടർമാർക്ക് നിർണ്ണായക പങ്കാണുള്ളത്

രാജസ്ഥാനിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശം പത്രിക സമർപ്പണത്തിനുള്ള അവസാന ദിവസം ഇന്നാണ് നാളെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മു പൂരിശോധന നടക്കും വ്യാഴാഴ്ചയാണ് നാമനിർദ്ദേശ ദ്വീതിക് പിൻവലിക്കാനുള്ള അവസാന ദിവസം

ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത ഓള് ആണ് ഇന്ത്യൻ സിനിമാ വിഭാഗത്തിലെ ഉദ്ഘാടന ചിത്രം

ഇക്കുറി ചലച്ചിത്രോത്സവം പ്രാധാന്യം കൊടുക്കുന്ന രാജ്യം ഇസ്രായേൽ ആണ് സംസ്ഥാനം ഝാർഖണ്ഡും ഇസ്രായേൽ സിനിമാനിർമ്മാണരംഗത്തെ അതികായനായ ഡാൻ വുൾമാന് ചലച്ചിത്രലോകത്തെ ആജീവനാന്ത സംഭാവനയ്ക്കുളള ഈ വർഷത്തെ അവാർഡ് സമ്മാനിക്കും

പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്

പോലീസ് വാർത്താവിനിമയ സംവിധാനങ്ങളുടെ ആധുനികവൽക്ക രണവും വെല്ലുവിളികളും എന്ന വിഷയത്തെ സംബന്ധിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ശ്രീസിൻഹ സുരക്ഷാ സേനകൾക്കും പോലീസിനും സുരക്ഷിതമായ വാർത്താവിനിമയ സൌകര്യങ്ങൾ വേണ്ടതിന്റെ ആവശ്യകത പരിഗണിച്ച് സ്പെക്ട്രം വേഗത്തിലും ലളിതമായും അനുവദിക്കാനുള്ള നടപടി ക്രമങ്ങൾ തന്റെ മന്താലയം സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് വിവരങ്ങൾ കൈമാറേണ്ടത് പോലീസിനെ സംബന്ധിച്ച് അത്യാവശ്യമാണെന്നും അതിനാൽ പോലീസിന്റ വയർലെസ് സംവിധാനം അധുനികവത്ക്കരിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു സുരക്ഷാസേനകൾക്ക് ഏറ്റവും ഗുണമേന്മയുള്ള സംവിധാനങ്ങൾ നൽകുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധ മാണെന്നും ശ്രീ

ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി കൃഷി മന്ത്രി രാധാ മോഹൻ സിംഗ് ആഭ്യന്തര സെക്രട്ടറി രാജീവ് ഗൌബ വിവിധ മന്ത്രാലയങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു

ന്യൂഡൽഹിയിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പല രാജൃങ്ങളും ലോകവൃാപാര സംഘടനയിൽ പരിഷ്ക്കാരങ്ങൾ വരുത്തേണ്ടതിന്റെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നും ശ്രീ

പുരോഗതി ലക്ഷ്യമാക്കിയുള്ള സംഘടനയായി ലോക വൃാപാക സംഘടന മാറുമ്പോൾ ആഗോള സമ്പദ്വ്യവസ്ഥ കൂടുതൽ മെച്ചപ്പെടുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി